ലോക കേരള സഭ ലോക കേരള സഭയുടെ രണ്ടാം സമ്മേളനം ഇന്ന് മുതൽ വെളളിയാഴ്ച വരെ നിയമസഭാ മന്ദിരത്തിൽ നടക്കും കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷത്യിൽ ചേർന്ന ചടങ്ങിൽ ഗ വർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോക്ട് ക്ക്രിള് സഭയുടെ രണ്ടാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തു

ലിഫ്റ്റ് സംവിധാനം അടക്കമുള്ള സംസ്ഥാന്ടത്ത് ആദ്യ സ്മാർട്ട് പോലീസ് സ്റ്റേഷനാണ് ഇത്